റിയാദിലെത്തി സൌദി അറേബ്യയുടെ ഭാവി നിക്ഷേപക സംഗമത്തിൽ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ദേശീയ പരമാധികാ രത്തെ ദുർബലപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം എടവണ്ണയിൽ ബയോഗ്യാസ് പ്ലാന്റിലെ വിഷവാതകം ശ്വസിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്നായി

മണിക്കൂർ സത്യഗ്രഹസമരം ആരംഭിക്കും യു ഡി എഫ് നേതാക്കൾ പെൺകുട്ടികളുടെ വീട് സന്ദർശിക്കും ഐ എസ് എൽ ഫുട്ബോളിൽ ഗോവ ബംഗളുരു മത്സരം സമനില

രണ്ടു ദിവസത്തെ സൌദി സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി റിയാദിലെത്തി സൌദി അറേബ്യയുടെ മൂന്നാമത് വാർഷിക സാമ്പത്തിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സൌദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൾ അസീസുമായും കിരീടാവകാശി മുഹ മ്മദ് ബിൻ സൽമാനുമായും ഒട്ടേറെ ഉഭയകക്ഷി വിഷയങ്ങളിൽ ചർച്ച നട ത്തും എണ്ണ പ്രകൃതിവാതക പുനരുപയോഗ ഊർജ്ജമേഖല വ്യോമ യാനം എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളിലും ഇന്ത്യയും സൌദി അറേ ബൃയും ഒപ്പുവയ്ക്കും സൌദി അറേബൃയുടെ ഇന്ന് ആരംഭിക്കുന്ന ഭാവി നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യയ്ക്ക് ഇനി വേണ്ടത് എന്ത് എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും രാജ്യര ക്ഷ വാണിജ്യം വിദ്യാഭ്യാസം അടിസ്ഥാനമേഖലാ വികസനം കൃഷി ഖനനം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി പങ്കാളിത്തവും ഇരുരാജ്യങ്ങ ളുടെയും ഉന്നതതല സംഘങ്ങൾ ചർച്ച ചെയ്യും ് മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ദേശീയ പരമാ ധികാരത്തെ ദുർബലപ്പെടുത്തുമെന്നും സംസ്ഥാനങ്ങളുമായി ആലോചിക്കാ തെയാണ് കേന്ദ്രം കരാർ ഒപ്പുവയ്ക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി തിരുവനന്തപുരത്ത് കരാറുമായി ബന്ധപ്പെട്ട ആശ ങ്കകൾ ചർച്ച ചെയ്യാൻ സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം രാജ്യത്തെ സാമ്പത്തിക അസമത്വം വർദ്ധിക്കാൻ മാത്രമേ കരാർ സഹായിക്കൂവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഉല്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വൻതോതിൽ എത്തു ന്നത് കാർഷിക ക്ഷീര മേഖലകളെ ദോഷക്രമായി ബാധിക്കുമെന്നും മുഖ്യ മന്ത്രി വിലയിരുത്തി

നിലമ്പൂർ സ്വദേശികളായ ജോമോൻ വിനോദ് ബിഹാർ സ്വദേശി അജയ് എന്നിവരാണ് മരിച്ചത് ഇതിൽ ഒരാൾ ബയോഗ്യാസ് പ്ലാന്റിലെ ജീവനക്കാരനും രണ്ടുപേർ പ്ലാന്റ് നന്നാക്കുന്ന ഏജൻസിയിലെ ജീവനക്കാരുമാണ്

് തമിഴ്നാട് തിരുച്ചിറപ്പള്ളി നടുക്കാട്ടുപട്ടിയിൽ കുഴൽക്കിണറിൽ വീണ മൂന്നു വയസ്സുകാരൻ മരിച്ചു മൂന്നു ദിവസത്തിലേറെ നീണ്ട രക്ഷാ പ്രവർത്തനങ്ങൾ വിഫലമാക്കിയാണ് സുജിത്ത് വിൽസന്റെ മരണം കുട്ടി യുടെ ജീർണ്ണിച്ച ശരീരം ബലൂൺ ടെക്നോളജിയും എയർ ലോക്കിംഗ് സാങ്കേതിക സംവിധാനവും ഉപയോഗിച്ച് കുഴൽക്കിണറിലൂടെ തന്നെ പുറ ത്തെടുത്തു

വനമേഖലയോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷനുകളിൽ സുരക്ഷ ശക്തമാക്കി

മുൻ വർഷങ്ങളിലെ വാറ്റ് പ്രകാരം പണം അടയ്ക്കാൻ നോട്ടീസ് നല്കുന്നതിനെതിരെയാണ് കടയടപ്പ് സമരം അനുകൂലമായ തീരുമാനമുണ്ടായി ട്ടില്ലെങ്കിൽ നവംബർ ഒന്നിന് യോഗം ചേർന്ന് ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു

കോഴിക്കോട് കൂടത്തായ് കൊലപാതക പരമ്പരയിൽ സിലിയുടെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ ജോളിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും ഇന്നലെ അപേക്ഷ പരിഗണിച്ച താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്സാസ് മജിസ്ട്രേറ്റ് കോടതിഒന്ന് ജാമ്യാപ്പേക്ഷയിലെ വിധി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു സിലിയുടെ മകൾ ആൽഫൈന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ പ്രജോളിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി അന്വേഷണസംഘം ഇന്ന് ്താമരശ്ശേരി മുൻസിഫ് മജിസ് ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും സിലി കേസിൽ രണ്ടാം പ്രതി എം

മാത്യുവിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും

വാളയാർ കേസ് പുനരനേഷിക്കണമെന്ന് ആവശ്യ പ്പെട്ട് ബി ജെ

രാവിലെ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും പാർട്ടി സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കൾ സത്യഗ്രഹത്തിൽ പങ്കെടുക്കും

വാളയാറിൽ മരിച്ച ദളിത് പെൺകുട്ടികളുടെ വീട് ഇന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹന്നാന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിക്കും സംസ്ഥാനത്ത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും യു ഡി എഫ് ഇന്ന് വൈകീട്ട് പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിക്കും അടുത്ത മാസം അഞ്ചിന് പാലക്കാട് ജില്ലാ ഹർത്താൽ നടത്താനും തിരുവനന്തപു രത്ത് ചേർന്ന യു ഡി എഫ് യോഗം തീരുമാനിച്ചതായി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു

വാളയാർ കേസ് പുനരന്വേഷണത്തിന് സി ബി ഐയെ ഏൽപിക്കണമെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ ന മജീദ് ആവശ്യപ്പെട്ടു

വളരെ നിസ്റ്റാരമായി ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എങ്കിൽ അതിനു പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നത് ഉറപ്പാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ആരോപിച്ചു

വാളയാറിലെ പെൺകുട്ടികളുടെ വീട് ഇന്ന് വനിതാ ലീഗ് സംസാന നേതാക്കൾ സന്ദർശിക്കും സ്ത്രീ സമൂഹത്തിനൊപ്പം നീതിക്കായി വനിതാ ലീഗ് ഉണ്ടാവുമെന്നും ഭാരവാഹികൾ പ്രസ്താവനയിൽ പറഞ്ഞു

വാളയാർ കേസിലെ ഇരകളായ പെൺകുട്ടികൾക്ക് നീതികിട്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്ന് സാഹിത്യകാരി സാറാ ജോസഫ് കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു

വേണു ആവശ്യപ്പെട്ടു

വാളയാർ കേസിൽ ആരോപണ വിധേയനായ പാലക്കാട് ശിശുക്ഷേമസമിതി ചെയർമാൻ രാജേഷിനെ സ്ഥാനത്തു നിന്ന് മാറ്റി കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ രാജേഷ് ശിശുക്ഷേമ സമിതി ചെയർമാനായി തുടരുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഗവണ്മെന്റ് നടപടി

ബാല കൃഷ്ണൻ കമ്മിറ്റി ശുപാർശ ചെയ്തു

ഐ എസ് എൽ ഫുട്ബോളിൽ എഫ് സി ഗോവ ബംഗളുരു സിറ്റി എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു മഡ്ഗാവിൽ ഇരുടീമു കളും ഓരോ ഗോളടിച്ചു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് രാത്രി ഏഴരയ്ക്ക് ജംഷഡ്പൂർ എഫ് സിയും ഹൈദരബാദും ഏറ്റുമുട്ടും

ചിറ്റഗോംഗിൽ ഷെയ്ഖ് കമാൽ ഇന്റർനാഷണൽ കപ്പിൽ ഗോകുലം കേരള ഫൈനൽ കാണാതെ പുറത്തായി സെമിയിൽ ആതിഥേയരായ ചിറ്റഗോംഗ് അബഹാനി രണ്ടിനെതിരെ ്മൂന്ന് ഗോളിന് ഗോകുലത്തെ പരാജയപ്പെടുത്തി

കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബാൾ ചാംപ്യൻഷിപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും നാല് സോണുകളിൽ നിന്നും പതിനാറ് ടീമുകൾ മത്സരിച്ച ചാംപ്യൻഷിപ്പിൽ എം ഇ എസ് കോളെജ് മണ്ണാർക്കാട് ഐ എസ് എസ് കോളെജ് പെരിന്തൽമണ്ണ എം ഇ എസ് കോളെജ് മമ്പാട് സെന്റ്ജോസഫ് കോളെജ് ദേവഗിരി സെന്റ് തോമസ് കോളെജ് തൃശൂർ ഫാറൂഖ് കോളെജ് എം എ എം ഒ കോളെജ് മുക്കം ഇ എം ഇ എ കോളെജ് കൊണ്ടോട്ടി എന്നീ ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്

തുലാവർഷവും ന്യൂനമർദ്ദ സാന്നിധ്യവും മൂലം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ അതീവ ശക്തമായ മഴ പെയ്തേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്

പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ല്കളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും പല ജില്ലകളിലും യെല്ലോ അലർട്ടായിരിക്കും ശ്രീലങ്കൻ തീര ത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട ന്യൂനർദ്ദ മേഖല ഇന്ന് കന്യാകുമാരി പ്രദേശത്തിന് മുകളിലായി കൂടുതൽ ശക്തി പ്രാപിച്ചേക്കും മറ്റന്നാളോടെ ലക്ഷദ്വീപ് മാലിദ്വീപ് മേഖലയ്ക്ക് മുകളിലായി ഇത് അതി തീവ്ര ന്യൂനമർദ്ദമാകാനും സാധ്യതയുണ്ട് ഇതേ തുടർന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകും മീൻപിടുത്തക്കാർ കടലിൽ പോക രുതെന്ന് മുന്നറിയിപ്പുണ്ട്

ഗൾഫിൽ നിന്ന് കത്തുമുഖേന മുത്തലാഖ് ചൊല്ലി വിവാഹമോ ചനം നടത്തിയ ആൾക്കെതിരെ താനൂർ പൊലീസ് കേസെടുത്തു പരപ്പന ങ്ങാടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് താനൂർ പുത്തൻതെരു പുത്തൻപറമ്പിൽ അബ്ദുൾ സലീമാണ് കത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത് സംസ്ഥാനത്ത് രണ്ടാമത്തെയും മലപ്പുറം ജില്ലയിൽ ആദ്യത്തേതുമാണ് മുത്തലാഖുമായി ബന്ധപ്പെട്ട ഈ കേസ്

വിജിലൻസ് വാരാചരണത്തിന് തുടക്കമായി പൊതുജന പങ്കാളിത്തോടെ ജനങ്ങളിൽ സത്യസന്ധത വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശനിയാഴ്ച വരെ വാരാചരണം സംഘടിപ്പിക്കുന്നത് സത്യനിഷ്ഠ ഒരു ജീവിത രീതി എന്നതാണ് പ്രമേയം

കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നതിൽ വ്യാപക അഴിമതി ഉണ്ടെന്ന പരാതിയിൽ കൊല്ലം കോർപറേഷനിലും പുനലൂർ മുനിസിപ്പാലിറ്റിയിലും വിജിലൻസ് പരിശോധന നടത്തി

ക്രമക്കേടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിജി ലൻസ് ഡി വൈ എസ് പി അറിയിച്ചു

പാര മ്പര്യേതര ഊർജ്ജസോത്രസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന മുൻനിര കമ്പനി കളുടെ വിവിധ ഉല്പന്നങ്ങൾ എക്സ്പോയിൽ പ്രദർശനത്തിനെത്തിക്കും

വാതി ലടയ്ക്കാതെയും വേഗപ്പൂട്ട് ഊരിയിട്ടും സർവീസ് നടത്തിയ ബസുകൾക്കെ തിരെയാണ് നടപടി

കോഴിക്കോട് റയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് പരിശോധന നടത്തി